ഡി എ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യൻ സൈനൃം ആക്രമിക്കപ്പെടുമ്പോൾ തിരിച്ചടിക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് രാജ്യരക്ഷാ മന്ത്രി നിർമ്മല സീതാരാമൻ

പൊതുസമ്മേളനത്തെ വിദേശകാരൃ മന്ത്രി സുഷമസ്വരാജ് ഇന്ന് അഭിസംബോധന ചെയ്യും

ജനശ്രദ്ധ തിരിച്ചുവിടാൻ കോൺഗ്രസ് അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളുന്നയിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു ജനങ്ങൾക്ക് എൻ ഡി എയിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാലാണ് ഗവൺമെന്റിന് ഉറച്ച തീരുമാനമെടുക്കാനും നടപ്പാക്കാനുമാവുന്നത് ആയുഷ്മാൻ പദ്ധതി വിജയിക്കുക മാത്രമല്ല രാജ്യത്ത് പുതു ചരിത്രം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പ്ലറഞ്ഞു

അക്കാദമിക നേതൃത്വം പുനരുത്ഥാന വിദ്യാഭ്യാസത്തിൽ എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സുവർണ വോയിസ് സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉപാധികളാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ശ്രീ ആരോഗ്യം വിദ്യാഭ്യാസം പോഷകാഹാരക്കുറവ് ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും നയങ്ങളുടെയം പ്രയോജനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വിദ്യാർത്ഥികളിലൂടെ കഴിയണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി റൈസ് എന്ന പേരിൽ ഗവൺമെന്റ് പദ്ധതി ആരംഭിച്ചിട്ടു ന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

മാനവവിഭവശേഷി മന്ത്രി പ്രകാശ് ജാവദേക്കർ വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതികതയുടെ ഉപയോഗം സപ്രോത്സാഹിപ്പിക്കേ തിന്റെ ആവശ്യം എടുത്തു പറഞ്ഞു

മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര ശുചിത്വ കൺവെൻഷന്റെ പ്ലീനറി സമ്മേളനം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി മതിയായ ശൌചാലയ സംവിധാനം ഉചിതമായ ആരോഗ്യ സംരക്ഷണം ശുചിത്വശീലം എന്നിവയുടെ അഭാവം ആയുഷ്കാലം മുഴുവനുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ചെന്നൈയിൽ മാധ്യമപ്ര്വർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാകിസ്ഥാൻ തുടർച്ചയായി തീവ്രവാദികളെ മന്ത്രി അതിർത്തിയിലേക്ക് ഭീകര പ്രവർത്തനങ്ങൾക്ക് അയക്കുന്നതായും ഇന്ത്യൻ സൈനൃത്തിന് അതിന് തക്കതായ മറുപടി കൊടുക്കേ ി വരുന്നതായും അവർ അറിയിച്ചു

പൊതുസമ്മേളനത്തെ കേന്ദ്ര വിദേശകാരൃ മന്ത്രി സുഷമസ്വരാജ് ഇന്ന് അഭിസംബോധന ചെയ്യും ചൊവ്വാഴ്ച ആരംഭിച്ച പൊതുചർച്ച തിങ്കളാഴ്ച വരെ തുടരും കഴിഞ്ഞ വർഷവും ശ്രീമതി സുഷമ സ്വരാജ് പൊതുചർച്ചയെ അഭിസംബോധന ചെയ്തിരുന്നു സമ്മേളനത്തിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേന്ദ്രമന്ത്രി ന്യൂയോർക്കിലെത്തിയത്

പ്രധാനമന്ത്രിയുടെ പ്രഭാഷ്ടണ്ടത്ത് തുടർന്നുതന്നെ മൻ കി ബാത്തിന്റെ മലയാളം പ്രിരിഭാഷ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ഇതിന്റെ പുനപ്പ്രക്ഷ്പണം രാത്രി എട്ടിന് കേൾക്കാം

ഇന്നലെ ആരംഭിച്ച ബീച്ച് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി നൂറോളം പേർ എത്തിയിരുന്നു ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഭൂചലനത്തെ തുടർന്നു ായ സുനാമിയിൽ നിരവധി കെട്ടിടങ്ങൾ നിലം പൊത്തി

മൃതദേഹങ്ങൾ ക ത്തുന്നതിനും രക്ഷാപ്രർത്തനങ്ങൾക്കുമായി സൈന്യത്തെ ന്ന് പ്രദേശത്ത് അയച്ചിട്ടുടെ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ

പരിപാടിയുടെ ആദ്യദിനം വിദ്യാർത്ഥികൾ അദ്ധ്യാപകർ എൻ സി സി കേഡറ്റുമാർ എന്നിവർക്ക് നാവികതാവളം സന്ദർശിക്കാനുള്ള സൌകര്യം ഒരുക്കിയിരുന്നു നാവികസേന ഉപയോഗിക്കുന്ന വൃത്യസ്ത ആയുധങ്ങളും ഉപകരണങ്ങളും പ്രദർശനശാലകളിൽ സന്ദർശകർ വീക്ഷിച്ചു

രാജ്യത്തെ പല സംസ്ഥാനങ്ങളോടൊപ്പം അരുണാചൽപ്രദേശിലും പരാക്രം പർവ് ആചരിക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ വർഷം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വിമാനത്താവളം സജ്ജമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു വിമാനത്താവള ലൈസൻസ് ഉടൻ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി

ഇത് പൂർത്തിയാകുമ്പോൾ കണ്ണൂർ എയർപോർട്ട് കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ആയി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

തെക്കൻ ദ്വീപായ ഒകിനാവയിലാണ് ട്രാമി എന്ന കൊടുങ്കാറ്റ് വീശിയടിച്ചത്

ലഷ്കർ ഇ തെയ്ബ അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിലെ നേതാക്കൾക്ക് സ്വാതന്ത്യം നൽകിയിട്ടുള്ളതടക്കമുള്ള നിരവധി കാര്യങ്ങൾക്ക് പാകിസ്ഥാൻ മറുപടി നൽകണമെന്ന് വോയിസ് ഓഫ് കറാച്ചി ഗ്രൂപ്പ് ആണ് ആവശ്യപ്പെട്ടത്

കശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായി ഇത്തരം പ്രശ്നങ്ങൾക്കാണ് പാകിസ്ഥാൻ തീർപ്പ് കൽപ്പിക്കേ ത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

കൊൽക്കത്തയിൽ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സംവാദത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അവർ

ഗ്വാളിയറിലെ ദർപ്പൺ കോളനിയിലാണ് ഫ്രഡ്ജിന്റെ സംഭവം കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് ചുമരിടിഞ്ഞ് വീഴാൻ കാരണം പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി